ദേശീയ പതാകകൾ ഉപയോഗിക്കരുതെന്ന് കേന്ദ്ര ഗവൺമെന്റ്

സ്ഥാപനങ്ങൾ തൊഴിലിടങ്ങളിലെ ലൈംഗിക ന് ചൂഷണങ്ങളെക്കുറിച്ച് വാർഷിക റിപ്പോർട്ടുകളിൽ പരാമർശിക്കണമെന്ന് മിനിസ്റ്ററി ഓഫ് ്കോപ്പറേറ്റ് അഫയേഴ്സ്

ഗെയിംസിലെ ഉദ്ഘാടന മൽസരങ്ങളിൽ ഇന്ന് മാറ്റുരയ്ക്കും

ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള പ്രസംഗത്തിനു ശേഷം പ്രാദേശിക ഭാഷയിലും ദൂരദർശൻ പ്രസംഗം സംപ്രേഷണം ചെയ്യും സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹി റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്യും ഡൽഹിയിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

സംസ്ഥാനങ്ങളും കേന്ദ്രഭരണപ്രദേശങ്ങളും നിബന്ധന പാലിക്കണമെന്നും മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നു കടലാസിൽ നിർമിച്ച പതാകകൾപോലെ പ്ലാസ്റ്റിക്കിൽ നിർമിക്കുന്നവ പെട്ടെന്ന് നശിക്കാത്തതിനാലും പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്നതിനാലുമാണ് ഇവ ഉപയോഗിക്കരുതെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ദേശീയ സാംസ്കാരിക കായികമേളകളിൽ എല്ലാംതന്നെ പൊതുജനങ്ങൾ കടലാസിൽ നിർമിച്ച പതാകകൾ മാത്രമേ ഉപയോഗിക്കാവു എന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു

കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

നീരൊഴുക്ക് ശക്തമായതിനാൽ അണക്കെട്ടുകളെല്ലാം തുറന്നനിലയിൽ തുടരുന്നു സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ ഉരുൾപൊട്ടി വ്യാപക കൃഷിനാശമുണ്ടായെങ്കിലും ആളപായമില്ല

മാട്ടുപ്പെട്ടി അണക്കെട്ട് തുറക്കുന്നതും കനത്ത മഴയും പരിഗണിച്ച് മുൻകരുതലായി മുന്നാറിലേക്ക് ദുരന്തനിവാരണ സേനയുടെ സംഘത്തെ അയച്ചു വയനാട്ടിൽ കനത്ത മഴ തുടരുകയാണ് ബാണാസുരസാഗർ അണക്കെട്ട് തുറന്നതോടെ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ പമ്പ കക്കി ആനത്തോട് അണക്കെട്ടുകളുടെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി ഇടുക്കി നെടുങ്കണ്ടം കൈലാസപ്പാറയിൽ ഉരുൾപൊട്ടി കൃഷി നശിച്ചു

കേരളത്തിലെ വെള്ളപ്പൊക്ക കെടുതി നേരിടുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് എല്ലാത്തരത്തിലുള്ള സഹായവും നൽകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു

കേന്ദ്ര റെയിൽവേ മന്ത്രി പിയുഷ് ഗോയലാണ് ഇക്കാര്യം അറിയിച്ചത് ജോധ്പൂർ റെയിൽവേ സ്റ്റേഷന് എ വൺ കാറ്റഗറി ലഭിച്ചപ്പോൾ ജയ്പ്പൂർ രണ്ടാം സ്ഥാനത്തും ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി മൂന്നാം സ്ഥാനത്തുമെത്തി തെലങ്കാനയിലെ വാറങ്കൽ റെയിൽവേ സ്റ്റേഷനാണ് മൂന്നാം സ്ഥാനം

ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ ഏറ്റെടുത്തിട്ടുള്ള സ്മാർട്ട് സിറ്റി പ്രോജക്ടുകളുടെ ഉദ്ഘാടനം ഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്മാർട്ട്സിറ്റി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് ഓൺ ഓപ്റ്റിക്കൽ ഫൈബർ കൊണാട്ട് പ്ലേസിൽ ഹൈസ്പീഡ് വൈഫൈ സ്മാർട്ട് ഫോൺസ് സോളാർ ട്രീ അംബേദ്ക്കർ വാത്തിക ഹൈടെക് നഴ്സറി എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിച്ചു

കുപ്പാര ജില്ലയിലെ തംഗ്ദർ മേഖലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം തീവ്രവാദികൾ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം തടയുന്നതിനിടെയാണ് വെടിവയ്പ്പ് ഉണ്ടായത് മഥുരയിലെ പുഷ്പേന്ദ്രസിംഗ് എന്ന ജവാനാണ് വീരമൃത്യു വരിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു

കെയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് അന്തരിച്ച എം കരുണാനിധിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് എം

കമ്മിറ്റി സ്റ്റാലിനെ പാർട്ടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമെന്ന് കരുണാനിധിയുടെ മറ്റൊരു മകനായ എം

അതേസമയം ഭരണകക്ഷിയായ എ

കെ യുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിങ്കളാഴ്ച കൂടുമെന്ന് പാർട്ടി കോ ഓർഡിനേറ്റർ ഒ പനീർശെൽവനും മുഖ്യമന്ത്രി ഇ

പളനി സ്വാമിയും അറിയിച്ചു

ഇതുസംബന്ധിച്ച് ലഭിക്കുന്ന പരാതികൾ വാർഷിക റിപ്പർട്ടിൽ ഉൾക്കൊള്ളിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു

ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപംകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയുടെ മധ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ ശക്തമായ കാലവർഷം ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അഡീഷണൽ ഡയറക്ടർ ജനറൽ മൃത്യുഞ്ജയ് മുഖപത്ര ന്യൂഡൽഹിയിൽ അറിയിച്ചു

ഓരോ കുടുംബത്തിനും വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ചെലവു വരുന്ന ചികിൽസ സൌജന്യമായി നൽകുന്നതാണ് പദ്ധതി ഗവൺമെന്റ് ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിലും ചികിൽസതേടാം

സിംഗ് മുംബൈയിൽ അറിയിച്ചു പദ്ധതി നടപ്പിലാക്കുന്നതോടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു

എസിന് വേണ്ടി ഇന്ത്യയിൽ വിധംസക പ്രവർത്തനങ്ങൾ നടത്തുവാൻ മുസ്തീം യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള പ്രധാന കുറ്റാരോപണം പിടിയിലായവരെ ഇന്നലെ ഡൽഹി ജില്ലാ ജഡ്ജി പുനം ബാംബയുടെ മുൻപിലാണ് ഹാജരാക്കിയത്

എ പിടിയിലായവർക്കെതിരെയുള്ള കേസിൽ അന്വേഷണം നടത്തിവരികയായിരുന്നു ഗുഢാലോചന ഭീകരപ്രവർത്തനം അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്നത്

അതേസമയം പാകിസ്ഥാനിൽ തടവിൽ കഴിയുന്ന ഇന്തൃക്കാരായ മീൻപിടിത്തക്കാരുടെ മോചനത്തിന് ഇന്ത്യ മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും മന്ത്രാലയം വൃക്തമാക്കി

സ്വാതന്ത്രൃദിന ആഘോഷങ്ങൾക്ക് മുന്നോടിയായാണ് ഇരുരാജ്യങ്ങളുടെയും തടവുകാരുടെ കൈമാറ്റം

ശനിയാഴ്ചയാണ് ഔദ്യോഗികമായി ഗയിംസ് ആരംഭിക്കുന്നതെങ്കിലും ഹാന്റ്ബാൾ ഫുട്ബോൾ തുടങ്ങിയ മൽസരങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു ഹാന്റ്ബാൾ പുരുഷവിഭാഗത്തിൽ ഇന്ത്യൻ ടീം ചൈനീസ് തായ്പേയോട് പരാജയപ്പെട്ടിരുന്നു

സി ടെസ്റ്റ് റാങ്കിങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് ഒന്നാം സ്ഥാനം നഷ്ടമായി

ഇതിനെ തുടർന്ന് ഇപ്പോൾ വിലക്ക് നേരിടുന്ന ഓസ്ട്രേലിയ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തിന് ഒന്നം സ്ഥാനം ലഭിച്ചു

ഇന്നലെ നടന്ന മൽസരത്തിൽ ഇന്ത്യ ആതിഥേയരായ ഭൂട്ടാനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു